പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പുരോഗമിക്കുന്നു

വായ്പാ പലിശ കുറയും

പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി വിമാനത്താവളത്തിൽ വച്ച് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി

തുടർന്ന് നടക്കുന്ന അവലോകന യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

രണ്ട് സംസ്ഥാനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി ഉറപ്പു നൽകി സാധാരണനില പുനസ്ഥാപിക്കാന്നുള്ള് പ്രയത്നങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്

മൂന്നു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള പ്രധാന്റ്മന്ത്രിയുടെ ആദ്യ സന്ദർശന പരിപാടിയാണിത്

ഒഡീഷയിൽ സ്ഥിതിഗതികൾ ഏറെക്കുറേ നിയന്ത്രണവിധേയമാണെന്നും അദ്ദേഹം അറിയിച്ചു ദുരന്ത ബാധിത സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക്

കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ ഉടൻ പുനസ്ഥാപിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഒഡീഷയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക് വ്യോമ നിരീക്ഷണം നടത്തി ഗതാഗത തടസ്സങ്ങൾ ഇന്നുതന്നെ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചു വരികയാണ്

രാജ്യീത്ത് പണലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോട്ടെയാണ് ഈ നടപടിയെന്ന് ആർ

വീായ്പാ തിരിച്ചടവിന് അനുവദിച്ച മൊറട്ടോറിയം മൂന്ന് മാസത്ത്രേക്ക് കൂടി നീട്ടിയതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആറിയിച്ചു പണപ്പെരുപ്പ നിരക്കിൽ കാര്യമായ വ്യതിയാനമില്ലെന്നും മൊത്ത് ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ചാ നിരക്ക് നെഗറ്റീവായി തുട്രുമെന്നും ശ്രീ

കോവിഡ് വ്യാപനം മൂലം മന്ദഗതിയിലായ രാജ്യത്തെ സാമ്പത്തിക മേഖലയുടെ പ്രവർത്തനം ഗവൺമെന്റിന്റെ വരുമാനത്തിലും ഗണ്യമായ കുറവാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു

മൂന്ന് മണിക്കൂറിനും മൂന്നര മണിക്കൂറിനും ഇടയിലുള്ള യാത്രകൾക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയും പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയുമാണ് കുറഞ്ഞതും കൂടിയതുമായ നിരക്കുകൾ

മസ്ക്കറ്റ് കുവൈറ്റ് ദോഹ ദുബായ് എന്നിവിടങ്ങളിൽ നിന്നാണ് ആയിരത്തിലധികം പ്രവാസികളുമായി വിമാനങ്ങൾ എത്തുന്നത്

കോവിഡ് രോഗ ലക്ഷണങ്ങളില്ലാത്തവർക്കാട്ണ് യാത്രാനുമതി ഉള്ളത്

വൈകിട്ട് ഏഴ് മണിക്ക് എല്ലാ കമ്മ്യൂണിറ്റി റേഡിയോകളിലും ഒരേ സമയം ഇത് പ്രക്ഷേപണം ചെയ്യും

ഇതാദ്യമായാണ് മന്ത്രി രാജ്യത്തെ എല്ലാ കമ്മ്യൂണിറ്റി റേഡിയോ ശ്രോതാക്കളുമായി ഒരേസമയം സംവദിക്കുന്നത്

മരണസംഖ്യ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആയി ഉയർന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ രാജൻ

ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ള മഹാരാഷ്ട്രയിൽ ഇന്നലെ മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

രോഗികളുടെ എണ്ണത്തിൽ രണ്ടാമത് നിൽക്കുന്ന തമിഴ്നാട്ടിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്

ഗുജറാത്തിലും ് സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്

രാജ്യ തലസ്ഫാന്മായ ഡൽഹിയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻ ്പത്തി ഒൻപത് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ച്ചെയ്ത്രീട്ടുള്ളത്

കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സൌകര്യം എന്നിവ ലഭ്യമല്ലാത്ത വിദൂര പ്രദേശങ്ങളിലുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും തിരഞ്ഞെടുക്കപ്പെട്ട റയിൽവേ സ്റ്റേഷനുകളിൽ ഇന്നു മുതൽ ടിക്കറ്റ് ബുക്കിംഗ് സൌകര്യം പുനസ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു

ടി

എസ്

സി പരീക്ഷകൾക്ക് ശേഷം ജൂൺ ആദ്യവാരം സർവകലാശാലാ പരീക്ഷകൾ നടത്താൻ ഉന്നതവിദ്യാഭ്യാസവകുപ്പ് മന്ത്രി ഡോ

ടി ജലീലിന്റെ അദ്ധ്യക്ഷതയിൽ വൈസ് ചാൻസലർമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ധാരണയായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും പരീക്ഷകൾ നടത്തുക

സായി കേന്ദ്രങ്ങളിൽ പരിശീലനം പുനഃരാരംഭിക്കുന്ന അത്ലറ്റുകൾ കോവിഡ് മാനദണ്ഡം കർശനമായി പാലിക്കേണ്ടതാണ്

മൂന്നു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഇതിനകം മരണത്തിന് കീഴടങ്ങിയത്

ഇരുപത് ലക്ഷത്തിലേറെ പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്

ദുഃഖ സൂചകമായി അമേരിക്കൻ ദേശീയപതാക മൂന്നു ദിവസം പകുതി താഴ്ത്തി കെട്ടുമെന്ന് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അറിയിച്ചു

പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലും ജർങ്ങൾ ഒത്തുകൂടുന്ന തരത്തിലുള്ള ഒരു ചടങ്ങുകളും പാടില്ലെന്നു് ആറിയിപ്പുണ്ട്